സംസ്ഥാന നിയമസഭയുടെ പതിനെട്ടാം സമ്മേളനം ഗവർണറുടെ നയ പ്രഖ്യാപന പ്രസംഗത്തോടെ നാളെ തുടങ്ങും കുറ്റകൃതൃങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏതു പൊലീസ് സ്റ്റേഷ നിലും പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് ഡി ജി

സർക്കു ലർ പുറപ്പെടുവിച്ചു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്ട് സാമഗ്രികളുടെ നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് നിർദേശം നൽകിയതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

ഇന്ത്യയിൽ ആരുടേയും പൌരത്വം നിയമം വഴി ഇല്ലാതാവില്ലെന്ന് അദ്ദേഹം വൃക്തമാക്കി ദേശീയ പൌരത്വ രജിസ്റ്ററിൽ ന്യൂനപക്ഷങ്ങളിൽ കോൺഗ്രസ് ഭീതിജനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തിൽ കോൺഗ്രസാണ് ആദ്യമായി പൌരത്വ രജിസ്റ്റർ മുന്നോ ട്ടുവെച്ചതെന്ന് അദ്ദേഹം ഓർമിപ്പിച്ചു മംഗലൂരുവിൽ പൌരത്വ നിമയ ഭേദ ഗതി ബോധവത്കരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാ ഥ്സിങ് പൌരത്വ നിയമ ഭേദഗതിയും ദേശീയ പൌരത്വ രജിസ്റ്റർ പുതുക്കലും ചോദൃം ചെയ്യുന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ നിലപാട് അറി യിക്കാൻ ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചത്

ഗവർണ റുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരിക്കും സമ്മേളനത്തിന്റെ ആരംഭം സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കും

വ്യാഴാഴ്ച അന്തരിച്ച കുട്ടനാട് എം

എ തോമസ് ചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഒരു ദിവസ ത്തേക്ക് പിരിയും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൌരത്വ നിയമ ഭേദ ഗതി സംബന്ധിച്ച് ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ച സംശ യങ്ങൾക്ക് ഗവൺമെന്റ് വിശദീകരണം നൽകിയതായാണ് റിപ്പോർട്ട് ഗവർണറെ മടക്കി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പി ക്കാൻ പ്രതിപക്ഷം സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ച എൻ

സി കേഡറ്റുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ന്യൂഡൽഹി കരിയപ്പ പരേഡ് മൈതാനത്ത് എൻ സി

നിർഭയ കേസിലെ ദയാഹർജി തള്ളിയ രാഷ്ട്രപതിയുടെ തീരുമാനം ചോദൃം ചെയ്ത് പ്രതി മുകേഷ് സിങ് സമർപ്പിച്ച ഹർജി ഇന്ന് ഉച്ചയ്ക്ക് സുപ്രീം കോടതി പരിഗണിക്കും ജസ്റ്റിസ് ആർ ഭാനുമതി അധൃക്ഷയായ മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് പ്രതികളെ തൂക്കിക്കൊല്ലാൻ മരണവാറണ്ട് പുറപ്പെടുവിപ്പിച്ച സാഹചര്യത്തിലാണ് ഹർജി അടിയന്തിരമായി പരിഗണിക്കുന്നത് കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏത് പൊലീസ് സ്റ്റേഷനിലും പരാതി നൽകാനും പ്രഥമ വിവർ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാനും സാധി ക്കുമെന്ന് കാണിച്ച് സംസ്ഥാന പൊലീസ് മേധാവി സർക്കുലർ പുറപ്പെ ടുവിച്ചു കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ പൊലീസ് സ്റ്റേഷനിൽ തന്നെ എഫ്

ആർ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കി ബന്ധ പ്പെട്ട പൊലീസ് സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് എഫ് ഐ

ഇക്കാര്യത്തിൽ വീഴ്ച കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെ തിരെ നടപടിയുണ്ടാകുമെന്നും സർക്കുലറിൽ പറയുന്നു

കാസർകോട് കലക്ട്രേറ്റ് ഹാളിൽ വൈദ്യുതി അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വൈദ്യുതി ബോർഡും ജനങ്ങളും തമ്മിൽ സൌഹാർദ്ദാന്തരീക്ഷം സൃഷ്ടിക്കാൻ ആദ്യ ചുവടുവയ്പാണ് അദാല ത്തെന്ന് മന്ത്രി പറഞ്ഞു വൈദ്യുതി ഉത്പാദന പ്രസരണ വിതരണ മേഖലകളിലെ പരാതികൾ പരിഗണിക്കുന്ന വൈദ്യുതി അദാലത്ത് രാവിലെ ക്ണ്ണൂരിൽ തുടങ്ങും മന്ത്രി എം

മണിയുടെ സാന്നിധൃത്തിലാണ് അദാലത്ത്

ജയരാജൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാസർകോട് ജില്ലയിലെ വിവിധ പരി പാടികളിൽ പങ്കെടുക്കും കുമ്പള സഹകരണ ആശുപത്രി കെട്ടിടം കാസർകോട് ജില്ലാ പൊലീസ് സഹകരണ സംഘം കെട്ടിടം ഗുരുവാ യൂർ സത്യഗ്രഹ സ്മാരകം എന്നിവ അദ്ദേഹം ഇന്ന് ജനങ്ങൾക്ക് സമർപ്പി ക്കും അർഹതപ്പെട്ടവർക്ക് ഭൂമി നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മുന്നറിയിപ്പ് നൽകി പട്ടയം നിഷേധിക്കുകയാണെങ്കിൽ അതിന് കാരണം വ്യക്തമാക്കി ഉദ്യോ ഗസ്ഥർ റിപ്പോർട്ട് നൽകണമെന്ന് കാസർകോട്ട് പട്ടയ മേള ഉദ്ഘാട ചടങ്ങിൽ മന്ത്രി ആവശ്യപ്പെട്ടു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളുടെ നിരോധനം പൂർണ്ണ മായി നടപ്പാക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് നിർദേശം നൽകിയ തായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൊല്ലത്ത് ആകാശവാണിയോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ഭക്ത ജനങ്ങളുടെ സഹകരണം അനിവാര്യ മാണ് നിരോധനം നിലവിൽ വന്നിട്ടും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൽ പ്രസാദങ്ങൾ വിതരണം ചെയ്യുന്നതായി മന്ത്രിയുടെ ശ്രദ്ധ യിൽപെടുത്തിയപ്പോഴായിരുന്നു ഈ പ്രതികരണം

കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മൂന്നു മാസത്തിനകം കാത്ത്ലാബ് പൂർണ്ണ സജ്ജമാകുമെന്ന് മന്ത്രി കെ

നിയോ ജക മണ്ഡലത്തിലെ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും മാർച്ചോടെ കുടുംബാരോഗൃ കേന്ദ്രങ്ങളാക്കുമെന്നും മന്ത്രി പറഞ്ഞു വിവാദ വിഷയങ്ങളിൽ മാത്രം താൽപര്യം കാണിക്കാതെ വിക്സനത്തിലും സാമൂഹ്യപ്രതിബദ്ധതയിലും മാധ്യമങ്ങൾ കൂടുതലായി ഇടപെട്ടാൻ അതിന്റെ പ്രതിഫലനം സമൂഹത്തിൽ ആകെയുണ്ടാവുമെന്ന് മന്ത്രി കട കംപള്ളി സുരേന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു മാധ്യമ ധാർമികത ലംഘി ക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം നിർദേശിച്ചു കൊല്ലം പ്രസ്ക്ലബ്ബിൽ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക യായിരുന്നു മന്ത്രി സംസ്ഥാന ലഹരിവർജ്ജന മിഷൻ വിമുക്തിയുടെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല ലഹരി വിരുദ്ധ ബോധവത്കരണ ശിൽപശാല മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ലഹരിവി രുദ്ധ ക്ലബ്ബുകളിലും പഞ്ചായത്തുതല വിമുക്തി കൂട്ടായ്മകളിലും വിഷയം അവതരിപ്പിക്കുന്നവർക്ക് പരിശീലനം നൽകാനാണ് ശിൽപ ശാല മത്സ്യകൃഷിയിൽ സംസ്ഥാനതല നേട്ടം കൈവരിച്ചവരെ ചാലക്കുടിയിൽ പുരസ്കാരം നൽകി ആദരിച്ചു ഉൾനാടൻ മത്സ്യഭവൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി ഇടുക്കി കാൽവരിമൌണ്ട് ടൂറിസം ഫെസ്റ്റ് മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു ഹൈഡൽ ടൂറിസം പദ്ധതി നടത്തിപ്പ് സഹകരണ സംഘ ങ്ങളെ ഏൽപ്പിച്ചാൽ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും അതു വഴി വികസനം സാധ്യമാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

പി രാമകൃഷ്ണൻ അറിയി ച്ചു

മാലിന്യ സംസ്ക രണത്തിന്റെ ഭാഗമായി ആരോഗൃ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് അരിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലെ താക്കോലുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി മറ്റൊരു ചടങ്ങിൽ പേരാമ്പ്ര ഐ ടി ഐയിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ സുരക്ഷാരഥവും ശിൽപിശാലയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

എസ് എൽ ഫുട്ബോളിൽ അത്ലറ്റികോ ഡിം കൊൽക്കത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു

കെ പ്ലേ ഓഫ് സാധ്യത ഉറ്പ്പിച്ചു

മത്സരത്തിനിടെ മൈതാനത്ത് കുഴഞ്ഞുവീണു മരിച്ച ഫുട്ബോൾ താരം ആർ ധനരാജന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ഇ

ധനരാജന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നതുൾപ്പെടെ കാരൃങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കു മെന്ന് മന്ത്രി അറിയിച്ചു നടൻ ഷെയ്ൻ നിഗവും നിർമ്മാതാക്കളും തമ്മിലുണ്ടായ പ്രശ്നം പരിഹരി ക്കാൻ അമ്മ ഭാരവാഹികൾ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെ ട്ടു ചിത്രങ്ങൾ മുടങ്ങിയത് മൂലമുണ്ടായ നഷ്ടം ഷെയ്ൻനിഗം പരിഹ ട രിക്കണമെന്നും ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഈ ആവശ്യം അമ്മ ഭാരവാഹികൾ നിരസിച്ചു തൃശൂർ കുതിരാൻ മേഖലയിൽ പവർഗ്രിഡ് കോർപ്പറേഷന്റെ ഭൂഗർഭ കേബിൾ ജോലിയുടെ ട്രയൽ റൺ നടക്കുന്നതിനാൽ ഇന്നും നാളെയും ഗതാ ഗത നിയന്ത്രണം ഏർപ്പെടുത്തി തൃശൂർ ഭാഗത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വാഹനങ്ങൾക്കായിരിക്കും നിയന്ത്രണം

ഡി എഫിന്റെ മനുഷ്യമഹാശ്യംഖലയുമായി ബന്ധപ്പെട്ട് മുസ്ലീം ലീഗിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരു ദ്ധമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

പൊതു ലക്ഷ്യത്തോടെ സാധാരണക്കാർ അത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നതും പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സംബന്ധിക്കുന്നതും വൃത്യസ്തമാണെന്ന് മജീദ് കോഴിക്കോട് പ്രസ്താ വനയിൽ പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിയിലൂടെ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോ

കെ മുനീർ നാദാപുരത്ത് കുറ്റപ്പെടുത്തി

എഫ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മനുഷ്യജാലിക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോ മുനീർ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് തൃശൂർ സെന്റ് മേരീസ് കോളജിൽ ശുചിത്വ ബോധവത്കരണ പരിപാടി സംഘടിപ്പി ക്കും നാഷണൽ സർവ്വീസ് സ്കീമിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടി പ്രിൻസിപ്പൽ സിസ്റ്റർ മാഗി ജോൺ ഉദ്ഘാടനം ചെയ്യും

ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു